പ്രളയക്കെടുതിവിലയിരുത്താണ്ത്തിയകേന്ദ്രസംഘംകണ്ണൂർ എറണാകുളംജില്ലകൾസന്ദർശിച്ചു

പാലാ ഉപതെരഞ്ഞെട്ടുപ്പീൽ പ്രചാരണംഊർജ്ജിതം എക്സിറ്റ്പോളുംഅഭിപ്രായസർവ്വേയും നിരോധിച്ചു

സംസ്ഥാനത്ത് പാൽവില വർദ്ധന നിലവിൽവന്നു

ഇ സിഗരറ്റ് നിരോധിച്ച്കേന്ദ്രം വിജ്ഞാപനം പുറപ്പെടുവിച്ചു

ചൈനാ ഓപ്പൺ ബാഡ്മിന്റൺ പ്രീ കാർട്ടറിൽ പി

സിന്ധു പുറത്ത്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ലേഖകൻ എൻ

കേന്ദ്ര ആഭ്യന്തര ജോയിന്റ സെക്രട്ടറി ശ്രീ പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജില്ലയിലെത്തിയത്

പ്രവർത്യ പ്രചാരണത്തിന് ഔദ്യോഗികമായി ശനിയാഴ്ചവരെ ആന്ുമതിയുണ്ടെങ്കിലും അന്ന് ശ്രീനാരായണഗുരു സമാധിയാകയുള്ൽ പ്രസ്യ പ്രചാരണം ഒഴിവാക്കാൻ മൂന്നു മുന്നണികളുടെയും നേതൃത്പം തീരുമാനിക്കുകയായിരുന്നു വിശാംശങ്ങളുമായിആകാശുപ്പാണികോട്ടയം പ്രതിനിധി ടോംമാത്യു

പൊതുമാപ്പിന്റെ ആനുകൂല്യം പ്രമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സ്പ്ക്യൂട്ടീവ് ഓഫീസർ അഭ്യർതഥിച്ചു

ഇ സിഗരറ്റിന് നിരോധനം ഏർപ്പെടുത്താൻ കേന്ദ്ര മന്ത്രിസഭ ഇന്നലെയാണ് തീരുമാനം എടുത്തത്

വ്യവസായ സ്ഥാപനങ്ങളുടെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കാനും സൌരോർജ്ജത്തിന്റെ ഉപയോഗം വർധിപ്പിക്കാനും നിരവധി നടപടികളാണ് കൈക്കൊണ്ടത് ന്യൂയോർക്കിലെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിപ്രായങ്ങൾക്ക് ലോകം കാത്തിരിക്കുകയാണെന്നും ജാവ്ദേക്കർ പറഞ്ഞു

പുതുക്കിയ വില രേഖപ്പെടുത്തിയ പാക്കറ്റുകൾ ലഭൃമാകുന്നത് വരെ പഴയ വില രേഖപ്പെടുത്തിയ പാക്കറ്റുകളിൽ തന്നെയാകും പാൽ വിതരണം വില വർധനവ് ക്ഷീര കർഷകർക്ക് ആശ്ചാസും പകരുന്നു

വൻകിട ഇടത്തരം ചെറുകിട ഉൌർജ ഉപഭോക്താക്കൾ കെട്ടിടങ്ങൾ വ്യക്തികൾ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നീ ആറ് വിഭാഗങ്ങളിലാണ് അവാർഡ് ധാരണാപത്രം പാലക്കാട് ഡിവിഷൻ പരിധിയിലെ റയിൽവേ പാലങ്ങളുടെ സുരക്ഷ പരിശോധിക്കാൻ റയിൽവേയും കോഴിക്കോട് എൻ

റയിൽവേ ബോർഡിന്റെ നിർദേശത്തെ തുടർന്നാണ് മേഖലയിലെ പരിചയസമ്പന്നരായ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഓഡിറ്റിംഗ് സേവനം പ്രയോജനപ്പെടുത്തുന്നത്

ഒന്നിനെതിരെ രണ്ടു ഗെയിമുകൾക്കാണ് തോൽവി

സാംസ്കാരിക സമ്മേളനം പുസ്തക പ്രകാശനം നാടകാവതരണം കവിയരങ്ങ് കഥാപ്രസംഗമേള തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്

സ്ത്രീകൾക്ക് എതിരായ പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് പരിഹരിക്കാനാകില്ല എങ്കിലും നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ വലിയ മാറ്റം വരുത്താനാകുമെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് കേരള സ്ത്രീ ഇന്നലെ ഇന്ന് നാളെ ദ്വി ദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വാഹന പരിശോധന കേന്ദ്ര മോട്ടോർ വാഹന നിയമഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വാഹന പരിശോധന ഇന്ന് പുനരാരംഭിച്ചു എന്നാൽ നിയമ ലംഘനങ്ങൾക്ക് ഉയർന്ന പിഴത്തുക ഈടാക്കില്ല